എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സിയെ എഫ് സി ഗോവ തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നഗര വൈദ്യുതി മേഖലകളിലെ സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നാളെ വൈകീട്ട് നിർവഹിക്കും

വി പുഗലൂർ തൃശൂർ വൈദ്യുത പ്രസരണ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും അതിനൂതന സാങ്കേതിക വിദ്യയായ വോൾട്ടേജ് സോഴ്സ് കൺവെർട്ടർ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്രസരണ ശൃംഖലയാണിത്

തിരുവനന്തപുരത്ത് സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്പിടും

തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ്സ് പദ്ധതിയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും

അരുവിക്കരയിൽ നിലവിലെ സംസ്കരണ പ്ലാന്റുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ നഗരത്തിലേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും

ഇതോടെ ഗവൺമെന്റ് സൃഷ്ടിച്ച പുതിയ സ്ഥിരം തസ്തികകളുടെ എണ്ണം മുപ്പതിനായിരം കടന്നുവെന്നും താൽക്കാലികമടക്കം അത് അരലക്ഷത്തോളമാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

തിരുവനന്തപുരം വിയ്യൂർ കണ്ണൂർ എന്നീ സെൻട്രൽ ജയിലുകളിൽ ക്സിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഓരോ തസ്തിക സൃഷ്ടിക്കും

ഉള്ളൂർ മാവൂർ ചീമേനി പനമരം വൈത്തിരി രാജാക്കാട് ആറന്മുള പാലോട് നേര്യമംഗലം എന്നിവിടങ്ങളിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകും

അഴിമതിമുക്ത കേരളത്തിനായി ആരംഭിക്കുന്ന വെബ്സൈറ്റിന് ജനജാഗ്രത എന്ന പേര് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ്ഡസ്ക് ആകാശവാണി

അമ്പത് ശതമാനത്തോളം ഗോത്രവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വയനാട് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ എടയൂർകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഇതിൽപെടുന്നു ദേദ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ പൂർത്തിയായ കാർഗോ കോംപ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉച്ചയ്ക്ക് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ഹർദീപ് സിംഗ് പുരി മുഖ്യാതിഥിയാവും ദ്ദേ അന്തർ സംസ്ഥാന നദീജല പ്രവൃത്തികൾ ഏകോപിപ്പിക്കുന്നതിന് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഹബ്ബ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നടക്കുന്ന പരിപാടിയിൽ മൂലത്തറ വലതുകര കനാൽ ദീർഘിപ്പിക്കൽ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും

ഗ്രാമ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പഞ്ചായത്തിനാണ് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിനും ലഭിച്ചു മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം

ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനും മൂന്നാം സ്ഥാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനും ലഭിച്ചു

ശാസ്ത്രീയമായ രീതിയിൽ ഈ മൂന്ന് വിഭാഗത്തിൽ നിന്നും റാൻഡം സാമ്പിളുകൾ ശേഖരിച്ചാണ് പഠനം നടത്തുന്നത്

എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സി യെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് എഫ് സി ഗോവ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തെത്തി ഇന്ന് ചെന്നൈയിൻ എഫ് സി നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡ് എഫ്

ദേദ കാലിക്കറ്റ് സർവ്വകലാശാല സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന അത് ലറ്റിക്സ് മീറ്റ് ഇന്ന് സമാപിക്കും

ഇന്നലെ അഞ്ച് മീറ്റ് റെക്കോർഡുകൾ പിറന്നു ദ്ദേ കായിക രംഗത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കേരളം ഏറെ മുന്നിലെത്തിയെന്ന് മന്ത്രി ഇ

പയ്യന്നൂർ മുനിസിപ്പൽ ആന്റ് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ദേദ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവം ഇന്നു നടക്കും കോവിഡ് നിയന്ത്രണങ്ങളാൽ കെട്ടുകാഴ്ച വരവ് ഒഴിവാക്കി പകരം എല്ലാ കരക്കാരും ചേർന്ന് ക്ഷേത്ര സങ്കേതത്തിൽ തന്നെ ഓരോ തേരും കുതിരയും ഒരുക്കും ഇന്ന് കാർത്തിക പള്ളി മാവേലിക്കര താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദ്ദേ ആരോഗ്യ ചികിത്സാ സ്ഥാപനങ്ങളിൽ സൌകര്യങ്ങളും സംവിധാനങ്ങളും കൂടുതൽ ജനക്ഷേമകരമാക്കുന്നതിനൊപ്പം സംസ്ഥാനത്തെ മെഡിക്കൽ കോളജുകൾ റിസർച്ച് കേന്ദ്രങ്ങളാക്കുമെന്ന് മന്ത്രി കെ

മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളജിലെ എം

എസ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് മെഡിക്കൽ കോളജ് കാന്റീൻ എന്നിവയുടെ കെട്ടിടോദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദേദ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമ പഞ്ചായത്തുകളിലും സപ്സൈകോ സൂപ്പർ സ്റ്റോറുകൾ യാഥാർത്ഥ്യമായെന്ന് മന്ത്രി പി

വയനാട് വെങ്ങപ്പള്ളിയിൽ പ്രവർത്തനമാരംഭിക്കുന്ന സപ്പൈകോ മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേദ ജനങ്ങൾക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന കേന്ദ്രങ്ങളായി സപ്പൈകോ വില്പനശാലകൾ മാറിയെന്ന് മന്ത്രി പി

അട്ടപ്പാടി പുത്തൂർ ആലമരത്ത് പുതുതായി ആരംഭിക്കുന്ന മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഐ ഡിസ്പെൻസറികൾ ആരംഭിച്ചതായും ആശുപത്രികളിലെയും ഡിസ്പെൻസറികളിലേയും സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചതായും മന്ത്രി ടി

ഐ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രജിസ്റ്റർ ചെയ്യുന്ന ദിവസം മുതൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ചികിത്സ ഉറപ്പു വരുത്തി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു രുര തൊഴിൽ നൈപുണ്യത്തിന്റെ വിവിധ തലങ്ങൾ ഗ്രാമങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോട് ജില്ലയിൽ ആരംഭിച്ച കൌശൽ കേന്ദ്രയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ടി പി രാമകൃഷ്ണൻ ഓൺലൈനായി നിർവഹിച്ചു